രുദ്രാപൂർ സന്ദർശിക്കും സംയോജിത സഹകരണ വികസന പ്രോജക്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

നിർമ്മാതാക്കളും ഉപഭോക്താക്കളും തമ്മിലുള്ള വിശ്വാസം വർധിപ്പിക്കാൻ സഹായിച്ചിട്ടു്ണ്ടെന്ന് പ്രധാനമന്ത്രി

വരെ ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു

ഹർഷീൽ ഡാനിയും പ്രീക്വാർട്ടറിൽ

സംസ്ഥാന സംയ്യോജിത സഹകരണ വികസന പ്രോജക്ട് അദ്ദേഹം ഉദ്ദ്ഘൂടന്ം ചെയ്യും സഹകരണ പ്രസ്ഥാനത്തിന് ഉണർവ്വ് നൽകി ഗ്രാമീണ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്ാണ് പദ്ധതി കാർഷിക മേഖലയിൽ വേണ്ടത്ര പിന്തുണിനൽകി കർഷകനെ ഈ രംഗത്ത് നിലനിർത്താൻ പദ്ധതി പ്പിഭാവനം ചെയ്യുന്നു ദീൻ ദയാൽ ഉപാധ്യായ കർഷക ക്ഷേമ ്പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കുള്ള് വായ്പ പ്രധാനമന്ത്രി വിതരണം ചെയ്യും ഒരു ലക്ഷം രൂപ വരെയുള്ള ബഹുമുഖ വായ്പാ പദ്ധതിയുടെ ഭാഗമാണിത്

ഗ്രാമ നഗര പരിധിയിലെ പാവപ്പെട്ടവരായ ഒന്നര കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു

ന്യൂഡൽഹിയിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കർഷകരുടെ വരുമാനം വർധിക്കുന്നതിലുപരി ചണം ഉല്പാദന രംഗത്ത് നിക്ഷേപം ആകർഷിക്കാനും കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

പട്ടികജാതി പട്ടികവർഗ്ഗ ഭേദഗതി ബില്ലും മന്ത്രിസഭാ അംഗീകരിച്ചു ദേശീയ സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം കൂടി ദീർഘിപ്പിക്കും തമിഴ്നാട്ടിലെ പാസ്ച്ചർ ഇൻസ്റ്റിട്ട്യൂട്ടിന് സ്ഥലം അനുവദിക്കാനുള്ള നിർദേശത്തിന് അംഗീകാരമായി പ്രവാസി ഇന്ത്യാക്കാരുടെ വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശത്തിനും മന്ത്രിസഭ അനുമതി നൽകി

സക്സേനയുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ചതിനുശേഷം മാത്രമേ കോടതി ജാമ്യാപേക്ഷയിലെ വാദം കേൾക്കൽ ആരംഭിക്കുകയുള്ളൂവെന്ന് പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്

എ ഗവൺമെന്റിന് വൃക്തമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ലോകത്ത് ശ്രദ്ധേയമായ സ്ഥാനം നേടിയതെന്ന് പ്രധാനമന്ത്രി നൂർഗ്രമോദി

ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം

തൊഴിലിനും വിദ്യാഭ്യാസത്തിനും അഞ്ച് ശതമാനം സംവരണമാണ് ഏർപ്പെടുത്തുന്നത് ബഞ്ചാരാസ് ഗാദിയ ലൊഹാർഡ് റൈക്കാസ് ഗദരിയ എന്നീ വിഭാഗക്കാർക്കും ആനുകൂല്യം ലഭിക്കും

അഴിമതിയ്ടിൽ പ്രാദ്രയുടെ പങ്ക് എന്താണെന്ന് തിരിച്ചറിയുന്നതിനാണ് ചോദ്യുംചെയ്യുന്നത്

മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത് അബുദാബിയിൽ അഡ്നോക് സി ഇ ഒ

ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് സമ്മേളനം

നിയമസഭാ സ്പീക്കർ പി

മേഖലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സമർപ്പിച്ച ശുപാർശകളിൽ ചർച്ച നടക്കും പശ്ചിമേഷ്യയിലെ കേരളീയ സമൂഹമാണ് മേഖലാ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്നത് ലോക കേരള സഭയുടെ ആദ്യ മേഖലാ സമ്മേളനമാണിത്

വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചിന് അവസാനിക്കും

സുധാകരൻ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു

യാത്രാ സൌകര്യം ഒരു ക്കുന്നതിനും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ആവശ്യ മായ സഹായങ്ങളും സൌകര്യങ്ങളും ഉറപ്പാക്കുന്നതിനും ആവശ്യ പ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിയ്ക്ക് കത്തയച്ചതായി മന്ത്രി ജി സു ധാകരൻ അറിയിച്ചു

കൂടുതൽ പോയിന്റ് നേടുന്നവർ പ്രീ കാർട്ടർ മത്സരങ്ങൾക്ക് യോഗ്യത നേടും സൈന നെഹ്വാൾ പി

സിന്ധു സമീർ വർമ്മ തുടങ്ങി നിരവധി പ്രമുഖർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്

ഇന്നലെ നടന്ന മത്സരത്തിൽ മ്യാൻമർ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്ക് ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചത് മറ്റൊരു മത്സരത്തിൽ നേപ്പാൾ ഇറാനെ തോൽപിച്ചു

കുസാറ്റ് സെമിനാർ ഹാ്ളിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യാതിഥിയാകും

നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൻമേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരന്നു അദ്ദേഹം പിന്നാക്ക വിഭാഗക്കാരുടെ നിലവിലെ സ്ഥിതി മനസിലാക്കാൻ അത് പ്രയോജനം ചെയ്യും അടുത്ത ഏപ്രിൽ മുതൽ യൂണിവേഴ്സൽ മുഖ്യന്ത്രി വൃദ്ധജൻ പെൻഷൻ യോജന ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു

വെടിയേറ്റ അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേയ്ക്ക് മാറ്റിയതായും ആരോഗൃ നില മോശമല്ലെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല

സംസ്ഥാന വന്യ മൃഗ സംരക്ഷണ വകുപ്പിനും ദേശീയ മ്യൂസിയം അതോറിറ്റിക്കും കോടതി നോട്ടീസ് അയച്ചു